പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നല്കി

ലോക്സഭയിൽ പ്രതിപക്ഷം നല്കിയ അവിശ്വാസ പ്രമേയം വെള്ളിയാഴ്ച ചർച്ചയ്ക്കെടുക്കും വിശദാംശങ്ങളുമായി സുപ്രഭ രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷാംഗങ്ങൾ ബഹളം ഉണ്ടാക്കി

ഡി പി അംഗം കെ

വെള്ളിയാഴ്ച ഏഴ് മണിക്കൂറാണ് അപ്പിശ്ചാ്സ പ്രമേയ ചർച്ചയ്ക്കായി അനുവദിച്ചിരിക്കുന്നത്

ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ്അഞ്ച് വൈ

രാവിലെ സഭ ആരംഭിച്ചപ്പോൾ തന്നെ ഉപതിരഞ്ഞെടുപ്പിൽ വീജിയിച്ചെത്തിയ നാലംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു രാജ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ പ്രവചനങ്ങൾ കൂടുതൽ കുറ്റമറ്റതാക്കാൻ ഗവൺമെന്റ് വിവിധ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ സഭയെ അറിയിച്ചു ഇന്ത്യയിലെയും വിദേശത്തെയും വിവിധ ഗവേഷണ സ്ഥാപനങ്ങളുമായി ചേർന്ന് കുറ്റമറ്റ സംവിധാനം ഒരുക്കാനാണ് ഗവൺമെന്റ് ശ്രമമെന്നും മന്ത്രി വൃക്തമാക്കി

കാലവർഷ ക്കെടുതികളെ നേരിടാൻ സംസ്ഥാനഗവൺമെന്റുകൾ സമർപ്പിക്കുന്ന നിവേദനങ്ങൾ കേന്ദ്രസംഘം പരിശോധിച്ച് മാത്രമേ നടപടി സ്വീകരിക്കുകയുള്ളൂവെന്ന് ശൂന്യവേളയിൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നാലംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മൂന്ന് പേരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു

ഡി പിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിനെതിരെ എൻ ഡി എ ഘടകകക്ഷികൾ ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി അനന്ത് കുമാർ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നതിലുമധികം പിന്തുണ എൻ ഡി എ യ്ക്ക് ലഭിക്കുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താലേഖകരോട് പറഞ്ഞു

പാർലമെന്റിന് പുറ്ത്ത് ് വാർത്താ ലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മേളനം സുഗമമാക്കാൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളും സ്ഹകരിക്കുമെന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രക്ടിനുമുന്തി പറഞ്ഞു രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ കന്ത്ത് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്

വിവിധ വിഷയങ്ങളിലുള്ള പാർലമെന്റിലെ വിശദമായ ചർച്ച രാജ്യത്തിന് മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് സമ്മേളനം സംസ്ഥാന നിയമസഭകൾക്ക് പ്രചോദനമാകണമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

രാജ്യസഭയിൽ ഉപചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം

അതിനിടെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ വർദ്ധന ഉണ്ടായിട്ടില്ലെന്ന് ദേശീയ ക്രൈം റിക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളെ ഉദ്ധരിച്ച് ആഭ്യന്തര സഹമന്ത്രി ഹൻസ്രാജ് ആഹിർ അറിയിച്ചു ഈ വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നത് ഗവൺമെന്റ് ഗൌരവമായി തന്നെ കാണുന്നുണ്ടെന്നും ആഹിർ പറഞ്ഞു

സഭാധ്യക്ഷൻ എം

ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാൾ പ്ലൂവ്ർത്തകർക്ക് മണ്ടേലയുടെ ദർശനങ്ങൾ എന്നും മാർഗ്ഗദർശനമാകുമെന്ന് സഭാധ്യക്ഷൻ പറഞ്ഞു

പദ്ധതി പൂർത്തിയാവുന്നതോടെ മേഖലയിലെ കർഷകർക്ക് ഇടതടവില്ലാതെ ജലസേചന സൌകര്യം ഉറപ്പാക്കാനായി ഇത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രിസഭ വിലയിരുത്തി

ഇക്കാരൃത്തിൽ പ്രത്യേക നിയമമില്ലെങ്കിൽ സ്ത്രീകൾക്ക് എതിരെയുള്ള വിവേചനമായി കാണാതിരിക്കാൻ ന്യായീകരണമില്ലെന്നും കോടതി നിരീക്ഷിച്ചു

എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്നതിന് സർവ്വ പിന്തുണയും നൽകുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീംകോടതിയിൽ വൃക്തമാക്കി കേസിൽ നാളെയും വാദം തുടരും

ജലവിതാനം ഉയർന്നതിനെ തുടർന്ന് പ്രധാന ഡാമു കളിലെ ഷട്ടർ ഉയർത്തിയിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ വിവിധ ഭാഗങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് വൻ തോതിൽ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്

വെള്ളപ്പൊക്ക ത്തെ തുടർന്ന് ചില സ്ഥലങ്ങളിൽ റോഡ് റെയിൽ ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട് ശനിയാഴ്ച വരെ കനത്ത മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥ പ്രവചനം

പാണ്ഡ്യെയ്യെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥിക്ൾ പ്രക്ഷോഭം ആരംഭിച്ചത്

വികസനം കർമ്മശേഷി വികസനം വാണിജ്യം നിക്ഷേപം തുടങ്ങിയവ പ്രതിനിധിതല ചർച്ചയിൽ വിഷയമായതായി വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ ട്ടീറ്റ് ചെയ്തു

അതിർത്തി കടന്ന് വൃാപാരം നടത്തുന്ന ചിലരുടെ തിരിച്ചറിയൽ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഇന്ന് ഗവർണർ വിളിച്ച് ചേർത്ത ഉന്നതതലയോഗം ചർച്ച ചെയ്തു സംസ്ഥാന പൊലീസ് മേധാവി എസ്

വെയ്ദ് വ്യവസായ വാണിജ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി ശൈലേന്ദ്ര കുമാർ ചീഫ് സെക്രട്ടറി ബി

സുബ്രഹ്മണ്യം തുടങ്ങിയവർ യോഗത്തിൽ സ്ഥംബന്ധിച്ചു